ജെ

സ്ഥാനാർഥിപട്ടിക ഇന്ന് പ്രഖ്യാപിക്കും കേരളത്തിലെ സ്ഥാനാർഥികളുടെ കാര്യത്തിൽ ധാരണയായി

യും അവി ശുദ്ധ കൂട്ടു കെ ട്ടി ലാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ വടകര വയനാട് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമിതി യോഗ ത്തിനു മുമ്പേ സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചെന്ന ആരോപണം അടി സ്ഥാന രഹിതമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്

ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആഘോഷിക്കുന്നു കേരളത്തിലെ എട്ട് ജില്ലകളിൽ പകൽച്ചൂട് മൂന്ന് ഡിഗ്രിവരെ ഉയർന്നേക്കുമെന്ന് ദുരന്തനിവാരണ അതോറിറ്റി

ജെ

യുടെ സ്ഥാനാർഥിപ്പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും ഇന്നലെ ന്യൂഡൽഹിയിൽചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയോഗം സ്ഥാനാർഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടു കൾ പറയുന്നു ആദ്യത്തെ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർഥികളെ ആയിരിക്കും ഇന്ന് പ്രഖ്യാ പിക്കുന്നത് സ്ഥാനാർഥി നിർണയത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മൂന്നുതവണ യോഗം ചേർന്നിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ സമിതിയോഗത്തിൽ പങ്കെടുത്തു കേരളത്തിലെ സ്ഥാനാർഥികളും ഇന്നത്തെ പട്ടികയിൽ ഉണ്ടായിരിക്കും

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ജനറൽസെക്രട്ടറി എം

രമേശ് ദേശീയ നിർവാഹകസമിതി അംഗം പി

കൃഷ്ണദാസ് തുടങ്ങിയവർ മത്സര രംഗത്തുണ്ടാവില്ലെന്നാണ് സൂചന പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്

ഡി ജെ

മാവേലിക്കര ഇടു ക്കി തൃശൂർ ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ

മത്സരിക്കുന്നത് കോട്ടയത്ത് കേരള കോൺഗ്രസ് പി

തോമസ് വിഭാഗവും മത്സരിക്കും അഞ്ച് ലോക്സഭാ മണ് ഡല്ങ്ങളിൽ കോൺഗ്രസും ബി

ഐ എം

ഇവിടങ്ങളിൽ ദൂർബലരായ സ്ഥാനാർഥികളെനിർത്തി കോൺഗ്രസിനെ സഹായിക്കാൻ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം ബി

തീരുമാനിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു വടകര കണ്ണൂർ കൊല്ലം കോഴിക്കോട് എറണാകുളം മണ്ഡല ങ്ങളിലാണ് ദുർബല സ്ഥാനാർഥികളെ ബി ജെ

രംഗത്തിറക്കാൻ പോകുന്നത് ഇതിന് പകരം തിരുവനന്തപുരത്തെ ബി ജെ

സ്ഥാനാർഥിയെ കോൺഗ്രസ് സഹായിക്കാനാണ് ധാരണയെന്നും കോടി യേരി പറഞ്ഞു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബി ജെ

എഫിന്റെയും യു ഡി എഫിന്റെയും ധാരണാ രാഷ്ട്രീയം പുറത്തുവന്നതിലെ ജാള്യം മറയ്ക്കാ നാണ് സി

എം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് മുതിർന്ന പാർട്ടി നേതാവ് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ അറിയിച്ചു കാവൽക്കാരൻ കള്ളനാണെന്ന കോൺഗ്രസ് പ്രചാരണത്തിൽ രാജ്യത്തെ സെക്യൂരിറ്റി ജീവനക്കാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷമാ പണം നടത്തി

ഞാനും കാവൽക്കാരൻ എന്ന സന്ദേശവുമായി രാജ്യത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ അഭിസംബോധന ചെയ്യുകയായി രുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾമൂലം കഴിഞ്ഞവർഷം ഒരു കോടിയോളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതായി കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി

കോൺഗ്രസിന്റെ നേതൃ ത്വത്തിലായിരിക്കും അടുത്ത കേന്ദ്ര ഗവൺമെന്റ് രൂപീകരണമെന്ന് കോൺഗ്രസ് മുഖ്യ വക്താവ് രൺദീപ് സുർജേവാല അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ഭിന്നത് പുലർത്തുന്ന പല പാർട്ടി കളും കേന്ദ്ര ഭരണത്തിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും പ്രധാനമന്ത്രി പദവിയിലെത്താൻ തടസ്സമില്ലെന്ന ബി

നേതാവ് മായാവതിയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സുർജേ വാല വടകര വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർഥികളെ കേന്ദ്ര തിര ഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയെന്ന ആരോപണം ഹൈക്കമാൻഡ് നിഷേധിച്ചു നേതൃത്വത്തിന്റെ അനുമതി യോടെയാണ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചതെന്ന് കേരളത്തിന്റെ ചുമ തല വഹിക്കുന്ന എ ഐ

സി ജനറൽസെക്രട്ടറി മുകുൾ വാസനിക് ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സമിതി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡ് അതൃപ്തി പ്രകടിപ്പിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുമുതൽ ആറ് ദിവസം കണ്ണൂർ കാസർകോട് പാർലിമെന്റ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും

ഡി എഫ് കണ്ണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടത്തും കണ്ണൂർ തളാപ്പിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക

ഡി

പ്രചാരണത്തിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വളപട്ടണത്ത് സംസാരിക്കും അഴീ ക്കോട് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതിനും റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനും നിരോധനം ഏർപ്പെ ടുത്തി ജില്ലാ കളക്ടർ വിളിച്ച കെ

യുടെയും ബി

എല്ലിന്റെയും യോഗത്തിലാണ് തീരുമാനം സ്വകാര്യ കമ്പനികൾ കേബി ളിടാൻവേണ്ടി റോഡ് കുഴിക്കുമ്പോൾ ബി

എൻ

കേബിളു കൾക്ക് തകരാറുണ്ടാകുന്നതായി യോഗത്തിൽ അധികൃതർ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം

ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ഫേസ്ബുക്ക് ടിറ്റർ വാട്സ് ആപ്പ് ടിക്ടോക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ കമ്മിഷനെ തീരുമാനമറിയിച്ച ത് അവർ തയ്യാറാക്കിയ പെരുമാറ്റച്ചട്ടത്തിൽ ഇതുസംബന്ധിച്ച് വൃക്തത വരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരും പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മി ഷണർ സുനിൽ അറോറ ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു

ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആഘോഷിക്കുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജന ങ്ങൾക്ക് ഹോളി ആശംസകൾനേർന്നു സാഹോദര്യത്തിന്റെയും നന്മ യുടെയും ആഘോഷമാണ് ഹോളിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണ് ഹോളിയെന്ന് ഉപരാഷ്ട്ര പതി വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു

ഈയിടെ നടന്ന നാലു ഗ്രാൻപ്രീകൾ ഫെഡറേഷൻകപ്പ് എന്നിവയിലെ പ്രകടനം വിലയിരുത്തിയാണ് അത്ലറ്റുകളെ തിരഞ്ഞെടുത്തത് നേപ്പാളിൽ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിത ടീം ഫൈനലിൽ കടന്നു ഇന്നലെ സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ മറുപടിയില്ലാത്ത നാല് ഗോളിനാണ് ഇന്ത്യു തോൽപ്പിച്ചത്

കേരള പ്രീമിയർലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്

യ്ക്കും കാസർകോട് പടന്ന ഷൂട്ടേഴ്സിനും ജയം

ഇന്ന് മുതൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കേരളത്തിലെ എട്ട് ജില്ല കളിൽ പകൽച്ചൂട് മൂന്ന് ഡിഗ്രിവരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം മുതൽ കോഴി ക്കോട് വരെ ജില്ലകളിലായിരിക്കും പതിവിലുംകൂടിയ ചൂട് അനുഭവപ്പെ ടുന്നത്

തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് ലോക ജലദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവം കനകക്കുന്ന് കൊട്ടാര ത്തിൽ രാജ്യാന്തര ശിൽപശാല ഉൾപ്പെടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ജലപരിപാലനം പരിപോഷണം വരൾച്ചയും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കുന്നതിന് ജലസംരക്ഷണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങ ളിൽ വിദഗ്ധർ സംസാരിക്കും

ശബരിമലയിൽ പത്തുദിവസത്തെ ഉത്സവത്തിന് സമാപനംകുറിച്ച് പമ്പയിൽ ഇന്ന് ആറാട്ട് ഉഷപൂജയ്ക്ക് ശേഷം ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തുനിന്നും പമ്പയിലേക്ക് പുറപ്പെടും ഉച്ചയോടെയാണ് ആറാ ട്ട് തിരിച്ചെഴുന്നെള്ളിപ്പ് സന്ധ്യയോടെ സന്നിധാനത്ത് എത്തിയശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും തുടർന്ന് രാത്രി പത്തിന് നടയടയ്ക്കും

മലപ്പുറം ജില്ലയിൽ പകർച്ച വ്യാധികൾ തടയുന്നതിനായി സ്കാഡ് പ്രവർത്തനം ഉൌർജിതമാക്കി കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം അവയുടെ പ്രജനനം തടയുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിച്ച് വരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയറങ്ങി ബോധവത്കരണവും പ്രതിരോധ പ്രവർത്തനവും നടത്തുകയും ചെയ്യുന്നുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാ മെഡി ക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു സംശയകരമായ സാഹചരൃം ശ്രദ്ധയിൽപ്പെട്ടാൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവല്ലയിൽ യുവാവ് പെട്രോളൊഴിച്ച് തീകൊളുത്തിയ പെൺകുട്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മര ണമടഞ്ഞു

സംഭവത്തിൽ കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചി രുന്നു മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കും

കൊച്ചി ചക്കംകുളങ്ങര ദേവസ്വം ഓഫീസർ എ

മഹാകവി മോയിൻകുട്ടിവൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ വാർഷിക പരിപാടിയായ വൈദ്യർ മഹോത്സവം നാളെ തുടങ്ങും

കൂത്തുപറമ്പിൽ എക്സൈസ് സംഘം ഒന്നര കിലോഗ്രാമിലേറെ കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു കാസർകോട് മഞ്ചേശ്വരം സ്വദേശി ഭവീഷ് കുമാറാണ് അറസ്റ്റിലായത്